സംസ്ഥാന പൊലീസും തടസ്സം നിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സി ബി

ഇന്ന് തുടക്കം

വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഇന്ന് അവസരം ലഭിക്കും

ജാഗ്രതാ പദ്ധതിക്ക് ഇന്ന് തുടക്കം

ടി

ചെന്നൈയിൽ ആരംഭിക്കും

ബി

സോളിസിറ്റർ ജനറൽ തുഷാർമേത്ത ഇന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ ബഞ്ചിൽ ഹർജി സമർപ്പിക്കും കൊൽക്കത്ത പൊലീസ് കമ്മീഷണ്ടർ രാജീവ് കുമാറിന്റെ വീട് പരിശോധിക്കാൻ എത്തിയ സി ബി ഐ സ്ംഘത്തെ സംസ്ഥാന പൊലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സി ബി

ഉദ്യോഗസ്ഥനെ പോലീസ് ഷേക്സ്പിയർ സ്രൺ പോലീസ് സ്റ്റേഷനിലേയ്ക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപ്പോയി ഇതിനുപിന്നാലെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഡി ജി പി വീര്രേന്ദ്ര എന്നിവർ രാജീവ്കുമാറിന്റെ വീട്ടിലെത്തി കൊൽക്കത്തയിലെ സി ബി ഐ ഓഫീസ് പോലീസ് വളഞ്ഞു ശാരദാ ചിട്ടി തട്ടിപ്പ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് സി ബി

കസ്റ്റഡിയിൽ എടുത്ത സി ബി

ചിട്ടിതട്ടിപ്പ് കേസിൽ തെളിവ് നശിപ്പിച്ച സംഭവത്തിലാണ് കമ്മീഷണറുടെ ഓഫീസ് പരിശോധിക്കാൻ എത്തിയതെന്ന് സി ബി

അതേസമയം തൃണമൂൽ കോൺഗ്രസ് ജനാധിപത്യ മൂല്യങ്ങളെ പരിഹസിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി

ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം രാവിലെ ആരംഭിക്കുമെന്ന് സ്പീക്കർ രാജീവ് ബിന്ദാൽ അറിയിച്ചു

അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ശനിയാഴ്ച സഭയിൽ അവതരിപ്പിക്കും

ഇതിനകം ഒരു കോടിയിലേറെ തീർത്ഥാടകർ പ്രയാഗ്രാജിൽ എത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും തുടരുന്നതായി പ്രയാഗ്രാജ് ഡിവിഷൻ പോലീസ് കമ്മീഷണർ ഡോ

വ്യാജ സർവകലാശാലയിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ അറസ്റ്റിലായത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാൻ ഇന്ത്യാ ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണെന്നും ശ്രീ

വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതിൽ ഡൽഹിയിലെ അമേരിക്കൻ എംബസിയെ കേന്ദ്ര ഗവൺമെന്റ് പ്രതിഷേധം അറിയിച്ചു

വിശദാംശങ്ങളുമായി ഷീജാ ഗണേശ്

ന്യൂഡൽഹിയിൽ ഇന്ന് ബോധവത്കരണ വാഹന റാലി രാജ്ഘട്ടിലെ ഗാന്ധി സ്മൃതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി നടക്കും രാജ്നാഥ് സിങ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവർ ചേർന്ന് വാഹന റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും

ഗാന്ധി സ്മാരകങ്ങളെ റാലിയിലൂടെ ബന്ധിപ്പിക്കും

റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട സന്ദേശം ഉദ്ബോധിപ്പിച്ചായിരിക്കും റാലി കടന്നുപോകുന്നത്

ജമ്മു കാശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു

പദ്ധതികൾ അനിശ്ചിതമായി നീളുന്ന പ്രവണത അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പൂർണമായി അവസാനിപ്പിക്കുമെന്ന് കാശ്മീർ ജനതയെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു

ഗുവാഹത്തിയിൽ രണ്ടാമത് ആസിയാൻ ഇന്ത്യ യുവജന ഉച്ചുകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക ടൂറിസം കൌൺസിലിന്റെ റിപ്പോർട്ടനുസരിച്ച് ഇന്ത്യ ടൂറിസം മേഖലയിൽ മൂന്നാം സ്ഥാനത്താണ്

ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ആരോഗൃവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ഗവൺമെന്റ് വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്

തുക ഒന്നിച്ചടയ്ക്കാൻ സാധിക്കാത്തതിനാൽ ജനങ്ങൾ കുടിവെള്ളക്ഷാമം നേരിടുന്ന അവസ്ഥ ഒഴിവാക്കാനാണിത് ഇത്തരം സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി അപേക്ഷകർക്ക് കണക്ഷൻ നൽകുകയും തവണകളായി അത് പിരിച്ചെടുക്കുകയും വേണം പഞ്ചായത്തും ജനപ്രതിനിധികളും ഇതിന് വേണ്ട സഹായം ജനങ്ങൾക്ക് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു

ടി

മറ്റ് രണ്ട് ഇന്ത്യൻ കളിക്കാരായ സാകേത് മൈനേനിയും ശശികുമാർ മുകുന്ദും കളിക്കളത്തിലെ ശ്രദ്ധാ കേന്ദ്രമാണ്

സ്പെയിനിൽ ഇന്നലെ രാത്രി നട്ന്ന് മത്സരത്തിൽ ഏകപക്ഷീയമായ മൂന്നു ഗോളുകൾക്കാണ് ഇന്ത്യൻ വനിതകൾ വിജയം സ്വന്തമാക്കിയത് ശനിയാഴ്ച നടന്ന ആദ്യുക മത്സരത്തിൽ അയർലന്റുമായി ഇന്ത്യ സമനിലയിൽ പിരിയുകയായിരുന്നു

വിശദാംശങ്ങളുമായി ഷീജ ഗണേഷ്

സ്പിരിചൽ പൂന്തോട്ടം ഔഷധ പൂന്തോട്ടം ബോൺസായ് ഗാർഡൻ മ്യൂസിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ അവസരം ലഭിക്കും പ്രവേശനം സൌജന്യമാണ് സന്ദർശനം സുഗമമാക്കാൻ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ഭവൻ വെബ്പ്ഉസെറ്റിലാണ് ബുക്കിംഗിന് രജിസ്റ്റർ ചെയ്യേണ്ടത്

ടുലിപ്സ് പൂക്കൾക്കും ആന്തൂറിയം ഓർക്കിഡ് തുടങ്ങിയ അലങ്കാര്യ പുഷ്പങ്ങൾക്കും പുറമെ ബുൾബൂസ് ഇനത്തിൽപ്പെട്ട ഉദ്യാന അലങ്കാർ പുഷ്പമാണ് ഈ വർഷത്തെ ആകർഷണം ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഓരോ വർഷവും ആയിരങ്ങളെ മരണത്തിന് കീഴ്പ്പെടുത്തുന്ന കാൻസറെന്ന മാരകരോഗത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ഭരണസംവിധാനങ്ങളേയും വ്യക്തികളേയും ബോധവാന്മാരാക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യാം

പുതിയ സ്ഹചര്യങ്ങളിൽ നീതിന്യായ വൃവസ്ഥയുടേയും ബാർ കൌൺസ്റ്റിലിന്റെയും പങ്കിനെ ചീഫ് ജസ്റ്റിസ് പരാമർശിച്ചു